ദുർഗാപൂർ സന്ദർശിക്കും

ശതമാനം സംവരണം വൃവസ്ഥ ചെയ്യുന്ന ബില്ലിന്റെ കരടിന് ബിഹാർ മന്ത്രിസഭയുടെ അംഗീകാരം

റെയിൽവേ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനാണ് അദ്ദേഹം എത്തുന്നത് വൈദ്യുതീകരിച്ച അന്താൽ മാൽഡ ഖാന സൈന്തിയ റെയിൽവേ ലൈനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും

റെയിൽവേ ലൈനുകൾ സജ്ജമാകുന്നതോടെ രാജ്യത്തിന്റെ ഉത്തരമേഖലയിൽ നിന്നും വടക്കുകിഴക്കൻ മേഖലയിലേക്കുള്ള കൽക്കരി ഉൾപ്പെടെയുള്ള ചരക്ക് കടത്ത് കൂടുതൽ സുഗമമാകും

വെങ്കയ്യനായിഡു ഇന്ന് കോട്ടയത്തും കൊല്ലത്തും സ്വകാര്യപരിപാടികളിൽ പങ്കെടുക്കും രാവിലെ പതിനൊന്നിന് കോട്ടയത്ത് നടക്കുന്ന സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം കൊല്ലഭ് പ്രസ്ക്ലബ്ബിന്റെ സുവർണജൂബിലി ആഘോഷങ്ങൾ ഉപരാഷ്ട്രപതി എം

സദാശിവം അധ്യക്ഷതവഹിക്കും സുവർണജൂബിലി ആഘോഷ ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും സുവർണജൂബിലിയോടനുബന്ധിച്ചുള്ള പ്രത്യേക തപാൽസ്റ്റാമ്പിന്റെ പ്രകാശനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും

അസംഘടിതമേഖലയിലെ തൊഴിലാളികൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവക്കും ബജറ്റിൽ നിരവധി ആശ്വാസപദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെറുകിട ഇടത്തരം കർഷകർക്കായി പ്രത്യേകധനസഹായപദ്ധതി പ്രഖ്യാപിച്ചതാണ് ഇതിൽ പ്രധാനം

അഞ്ച് ലക്ഷം രൂപവരെ വരുമാനമുള്ളവരെ ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കി ഒപ്പം ഒന്നരലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾക്കും നികുതി ഒഴിവാക്കി

പശു പരിപാലനത്തിനായി രാഷ്ടീയ കാമധേനു ആയോഗും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലയിൽ എട്ട് കോടി പാചകവാതക കണക്ഷൻ നല്കും അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാർ എന്നിവരുടെ ഓണറേറിയം ഇരട്ടിയാക്കി

ഇത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇടക്കാല ബജറ്റാണെന്നും ഇന്ത്യയെ വികസനത്തിന്റെ പാതയിലേക്കു നയിക്കുന്ന ട്രെയിലർ ആണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു

എന്നാൽ ബിജെപി യുടെ തിരഞ്ഞെടുപ്പ് ബജറ്റാണ് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചതെന്നാണ് പ്രതിപക്ഷം പ്രതികരിച്ചത്

്ജനങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്ന യാതൊന്നും ബ്ജറ്റീലില്ലെന്ന് കോൺഗ്രസ് നേതാവ് മല്ലാകാർജ്ജുന ഖാർഗെ പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

ഇതുവരെയുള്ള മറ്റൊരു ഗവൺമെന്റിനും നേടാൻ സാധിച്ചിട്ടില്ലാത്ത നേട്ടമാണ് ഇത്

ഏഴു വർഷം മുമ്പ് ഇത് ആറ് ശതമാനമായിരുന്നു

കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതിയുടെ ചുവടു പിടിച്ചാണ് ബിൽ അവതരിപ്പിക്കുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ് ഇന്നലെ പാട്നയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബില്ലിന്റെ കരടിന് അംഗീകാരം നൽകിയത്

എസ് ആർ ഒ

വരുന്ന പൊതുതെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൊൽക്കത്തയിൽ വിവിധ രാഷ്ട്രീയപാർട്ടികളുമായും ഉദ്യോഗസ്ഥരുമായും നടത്തിയ ദ്വിദിന ചർച്ചകൾക്കു ശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഇക്കാര്യം രണ്ടു പതിറ്റാണ്ടിലേറെയായി ഇലക്ട്രോണിക് വോട്ടിങ് മെഷീനുകൾ രാജ്യത്ത് ഉപയോഗിച്ചു വരികയാണെന്ന് ശ്രീ

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുദൃഡമായ നയമാണ് ഇലക്ട്രോണിക് വോട്ടിങ് മെഷീനുകൾ അത് അങ്ങനെ തന്നെ തുടരുമെന്ന് കരുതുന്നതായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു

പുണ്യസ്നാനത്തോട് അനുബന്ധിച്ച് ജില്ലയിലെ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മൂന്ന് ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മേഖലയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി

ശീതയുദ്ധ സന്ധിയിലെ വ്യവസ്ഥ റഷ്യ ലംഘിച്ചതിനാലാണ് കരാറിൽ നിന്നും പിൻമാറുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രൂപ് പറഞ്ഞു ശീതയുദ്ധ കാലത്ത് സംഭരിച്ച ആയുധങ്ങൾ നിർവ്വീരൂർചെയ്യാൻ റഷ്യ തയ്യാറാകുന്നില്ലെന്നാണ് അമേരിക്കൻ ന്റില്പാട് കരാർ വ്യവസ്ഥ ലംഘിച്ച് റഷ്യ ദീർഘദൂര മിസ്കൈൽ പ്രീക്ഷണം നടത്തിയതായും അമേരിക്ക ആരോപിച്ചു എന്നാ്ൽ മിസൈൽ പരീക്ഷണം സംബന്ധിച്ച അമേരിക്കൻ ആരോപ്ണം റഷ്യ നിഷേധിച്ചു

ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോംങ് ഉന്നുമായി ഈ മാസം ശ്രീ ട്രംപ് ചർച്ച നടത്തുന്നുണ്ട് ഈ ചർച്ചയ്ക്കിടയിലാണ് ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്

തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന അവസാന ദിനം വരെ വോട്ടർമാർക്ക് പുതുതായി പേര് ചേർക്കാനുള്ള സൌകര്യം ലഭ്യമാണ്

നാലാമത്തെ മത്സരത്തിൽ കരുത്തരായ മഹാരാഷ്ട്രയെ ഒന്നിനെതിരെ രണ്ടുഗോളുകൾക്ക് തോൽപ്പിച്ചായിരുന്നു ജയം